കണ്ണൂരും കാസർകോടും റീ പോളിംഗ് സമാധാനപരം

പുനർനിർമാണത്തിൽ നെതർലൻ്റ്സ് മാതൃക

പൊലീസ് അന്വേഷണ് തുടരാമെന്ന് ഹൈക്കോടതി

തള്ളി സംസ്ഥാന് ഗ്വൺമെന്റ് പ്രളയത്തിന് കാരണം അതിവർഷം തന്നെയെന്ന് സത്യവാങ്മൂലം

കള്ളവോട്ട് നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂരിലെ ആറും കാസർഗോഡ് ജില്ലകളിലെ ഒരു ബൂത്തിലും ഇന്നലെ റീ പോളിങ്ങ് നടന്നു

കണ്ണൂർ കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏഴു ബൂത്തുകളിൽ ഇന്നലെ നടന്ന റീപോളിങ്ങ് സമാധാനപരമായിരുന്നു കള്ളവോട്ട് നടന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഇവിടെ റീപോളിംഗ് നടത്തിയത്

കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് റീപോളിങ്ങ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയത് പ്പോളിങ്ങ് കുറ്റമറ്റതും സുരക്ഷിതവും ആക്കുന്നതിന് നിരീക്ഷണ സംവിധാനങ്ങളും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരുന്നു ബൂത്തുകളിൽ വെബ്കാസ്റ്റിങ്ങിന് പുറമെ വീഡിയോ കവറേജും ഉണ്ടായിരുന്നു കേരളത്തിനു പുറമെ ഡൽഹി തമിഴ്നാട് പശ്ചിമ ബംഗാൾ കർണാടക ഗോവ എന്നിവിടങ്ങളിലും റീ പോളിംഗ് നടന്നു

എക്സിറ്റ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ യു ഡി എഫിന് മുന്നേറ്റം

ഡി എഫ് നേടുമെന്നാണ് ഇന്ത്യാ ടുഡേ പ്രവചിക്കുന്നത്

ജെ പി ക്ക് പരമാവധി ഒരു സീറ്റും ലഭിക്കുമെന്നും ഇന്ത്യാ ടുഡേയുടെ പ്രവചനത്തിൽ പറയുന്നു

ഡി

ഡി എഫിന് പ്രവചിക്കുന്നത് ഇടതുമുന്നണി നാല് സീറ്റ് വരെ നേടുമെന്നാണ് ടൈംസ് നൌ പ്രവചനം

ജെ പി ഒരു സീറ്റ് നേടുമെന്നും ടൈംസ് നൌവിന്റെ എക്സിറ്റ് പോൾ പ്രവചനത്തിൽ പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ

എഫ് മുന്നേറ്റമുണ്ടാകുമെന്ന് സി

ഡി

എ ഒരു സീറ്റിലും വിജയിക്കുമെന്നും സി

മുഖ്യമന്തി വിദേശ സന്ദർശനം സ്ട്രസ്ഥാനത്തിന് ഗുണകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രിളയം തടയാനും പ്രളയാനന്തര പുനർനിർമാണത്തിനും നെതർലന്റ്സ് മികച്ച മാതൃകയെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രളയ പുനർനിർമാണവുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉടനെ യോഗം വിളിക്കും നെതർലന്റ്സിൽ പ്രളയ പുനർനിർമാണ മാതൃകകൂടി കണക്കിലെടുത്താകും യോഗം കൃഷി വനപരിപാലനം പരിസ്ഥിതി സൌഹൃദ ടൂറിസം തുടങ്ങിയ പദ്ധതികൾ സംബന്ധിച്ച് വിവിധ ചർച്ചകൾ സന്ദർശനത്തിനിടെ നടത്തിയതായി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ജല കാർഷിക സമുദ്രജല സംരംഭങ്ങളിൽ ഡച്ച് കമ്പനികളുടെ സഹായത്തോടെ വൻ കുതിച്ചുചാട്ടമാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു രമേശ് ചെന്നിത്തല പോലീസ് പോസ്റ്റൽ വോട്ട് തിരിമറി കേസിൽ പോലീസ് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വോട്ടെണ്ണലിനു ശേഷം രണ്ടാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു കേസ് അടുത്തമാസം പത്തിന് കോടതി വീണ്ടും പരിഗണിക്കും പോലീസിന്റെ പോസ്റ്റൽ ബാലറ്റ് സംബന്ധിച്ച രേഖകൾ ലഭിക്കാൻ വോട്ടെണ്ണൽ കഴിയണം അതിനാൽ എല്ലാ പോസ്റ്റൽ ബാലറ്റ് തിരിമറി ആരോപണങ്ങളിലും സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി നിലനിൽക്കില്ലെന്നും ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചു കാലാവസ്ഥ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ആന്റമാന്റ്ര നിക്കോബാർ ദ്വീപുകളിൽ എത്തിയതായി കേന്ദ്ര കാലാപ്പ്സ്ഥാ നിരീക്ഷണ വകുപ്പ്

കണ്ണൂർ ആക്രമണം കണ്ണൂരിൽ റീപോളിംഗ് നടന്ന പിലാത്തറയ്ക്കടുത്ത് രണ്ട് വീടുകൾക്ക് നേരെ ഇന്നലെ രാത്രി ബോംബേറുണ്ടായി പിലാത്തറ പുത്തൂരിൽ കോൺഗ്രസ് ബൂത്ത് ഏജന്റിന്റെയും സി എം നഗറിൽ ഒരു സ്ത്രീയുടെയും വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്

സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ല

ഹയർ സെക്കന്ററി പ്രവേശന ഏകജാലക സംവിധാന വെബ്സൈറ്റിൽ അപേക്ഷാനമ്പറും ജനനതീയതിയും നൽകി പരിശോധിക്കാം തിരുത്തലുകൾക്ക് നാളെ വൈകിട്ട് നാലുവരെ സമയം നൽകിയിട്ടുണ്ട് പ്രഖ്യാപിച്ചതിലും ഒരു ദിവസം നേരത്തെയാണ് ഹയർസെക്കൻറി ഡയറക്ട്രേറ്റ് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചത്

സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മകൾ രഞ്ജിനി ഗൊഗോയ് ആണ് മോഹൻലാലിനുവേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശിപ്പാ്ണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

അമിക്കസ്ക്യൂറിയുടേത് ശാസ്ത്രീയ പഠനമല്ലെന്നും ശാസ്ത്രലോകം തള്ളിയ കണക്കുകൾ വച്ചണ് അമിക്കസ്ക്യൂറി റിപ്പോർട്ടെന്നും ഹൈക്കോടതിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഗവൺമെന്റ് അറിയിച്ചു അതിവർഷം തന്നെയാണ് പ്രളയത്തിന് കാരണമെന്നും ഇക്കാര്യം കേന്ദ്ര ജല കമ്മിഷൻ ശരിവച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമില്ലെന്ന് ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചു കേരളത്തിലുണ്ടായ പ്രളയം മനുഷ്യനിർമിതമാണെന്ന ആരോപണത്തിന് അനുകൂലമായാണ് കഴിഞ്ഞ മാസം അമിക്കസ്ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്

തമിഴ്നാട് തേവാരം മുതൽസ്ട്രീറ്റ് അരുൺകുമാർ ആണ് അറസ്റ്റിലായത് പൊലീസ് റെയ്ഡിനിടെ ഇയാളുടെ കൂട്ടാളി ഓടി രക്ഷപെട്ടു തമിഴ്നാട് ഗൂഡല്ലൂർ രാജീവ്ഗാന്ധിനഗർ സ്വദേശി ഭാസ്കരൻ ആണ് രക്ഷപെട്ടത് ഇരുവരും ബാലഗ്രാമിലെ സ്വകാര്യ പശുഫാമിൽ ജീവനക്കാരാണ് കയ്യേറ്റം പഴയ മൂന്നാർ ടൌണിൽ ദേശീയപാതയോരത്ത് സ്വകാര്യ റിസോർട്ടിന് സമീപം കോടികൾ വിലയുള്ള സ്ഥലത്ത് ഇന്നലെ കൈയ്യേറ്റശ്രമം നടന്നു ഒരു സംഘമാളൂക്ക് ഭൂമി വെട്ടിത്തെളിച്ച് കയ്യടക്കാൻ ശ്രമിച്ചത് ദേവികുളം സ്യബ് ക്ളക്ടറുടെ നേതൃത്വത്തിൽ തടഞ്ഞു കണ്ണൻ ദേവൻ കമ്പനിയുടെ ഉടമസ്ഥയിൽ ഉള്ള ഭൂമി റവന്യൂ അധിനതയിൽ ഉള്ളതാണ്സ് തെറ്റ് ധരിച്ചാണ് കൈയേറിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം രേഖകളുടെ പരിശോധനയ്ക്കു ശേഷ്ം സ്ഥികരിക്കാനാകുമെന്ന് സ്ഥലം സന്ദർശിച്ച ദേവികുളം സബ് കളക്ടർ രേണുരാജ് പറഞ്ഞു

മീനങ്ങാടി പഞ്ചായത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാലിന്യം ശേഖരിച്ചത്

സിദ്ദിഖ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ വടകര മണ്ഡലത്തിലെ കക്ഷിരഹിത സ്ഥാനാർത്ഥിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കണമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി